രാജ്യത്ത് ശക്തമായ വിതരണ ശൃംഖല കെട്ടിപ്പടുക്കാൻ നിക്ഷേപക രംഗത്ത് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പീട്ടിലിരുന്ന് ജോലി ഒ്ചയ്യാൻ ബുദ്ധിമുട്ടുള്ള ഐ ടി ജീവനക്കാർക്കായി വർക്ക് നിയർ ഹോം യൂണിറ്റുകൾ ആരംഭിക്കാൻ സർക്കാർ സന്നദ്ധമാണെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ

ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം

ജനകേന്ദ്രീകൃതവും ജനങ്ങളാൽ നയിക്കുന്നതും പരിസ്ഥിതി സൌഹൃദവുമായ സർക്കാർ നയങ്ങളെക്കൂറിച്ച് ശ്രീ

രാജ്യത്ത് ശക്ത്രമായ് വിതരണ ശൃംഖല കെട്ടിപ്പടുക്കാൻ നിക്ഷേപരംഗത്ത് ്ളിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സമയമായെന്നും പ്രധാനമന്ത്രി ്പറ്റഞ്ഞു രാജ്യം ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയെ അവസരമാക്ക്ഡ്മാറ്റാൻ ആത്മനിർഭർ ഭാരത് പദ്ധതി സുപ്രധാന പങ്കുവഹിക്കൂമെന്നും അദ്ദേഹം പറഞ്ഞു

കോവിഡ് ബാധ രാജ്യത്ത് മാസങ്ങളോളം നീണ്ടു നിന്നേക്കാമെന്നും കർശന ജാഗ്രതയും രോഗപകർച്ച തടയാനുള്ള സംവിധാനവും തുടരേണ്ടതുണ്ടെന്നും ഐ സി എം ആർ

മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കോവിഡ് ബാധിക്കുന്ന തോത് ഇന്ത്യയിൽ വളരെ കുറവാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി നിലവിൽ രോഗമുക്തരായവരുടെ എണ്ണം രോഗമുള്ളവരെക്കാൾ ലോക് ഡൌൺ കൂടുതലാണ് ഏർപ്പെടുത്തിയത് പ്രയോജനകരമായിരുന്നുവെന്നാണ് സർവേയിൽ കണ്ടെത്തിയതെന്നും ഡോ ബൽറാം ഭാർഗവ പറഞ്ഞു

വിഡിയോ കോൺഫറൻസിംഗിലൂടെ നടക്കുന്ന യോഗത്തിൽ ധനമന്ത്രി നിർമലാ സീതാരാമൻ അധ്യക്ഷത വൃഹിക്കും

സംസ്ഥാനങ്ങളുടെ വരുമാന നഷ്ടവും നഷ്ട പരിഫീർമവും യോഗം ചർച്ച ചെയ്യും

കുവൈത്തിൽ നിന്നും നാലും ദ്ദേ്ഹയിൽ നിന്ന് രണ്ടും വിമാനങ്ങളാണ് എത്തുന്നത്

സൌകര്യങ്ങൾ കുറഞ്ഞ പ്രദേശങ്ങളിലാണ് ഇത്തരം കെയർ സെന്റർ കോച്ചുകൾ സ്ഥാപിക്കുന്നത്

ലോകത്ത് ആദ്യമാണ് ഇത്ര വലിയ തരത്തിലുള്ള ചരക്ക്നീക്കം തീവണ്ടി മാർഗം സാധ്യമാകുന്നത് ഹരിത ഇന്ത്യ എന്ന ആശയത്തിന് ഈ വിജയം പ്രചോദനമാകുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു

ഇക്കുറി ഡിജിറ്റൽ രൂപത്തിലാണ് യോഗദിനം ആചരിക്കുന്നത് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത മൈ ലൈഫ് മൈ യോഗ എന്ന വീഡിയോ ബ്ലോഗിംഗ് മത്സരത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

ഇത്തരം വ്യാജ വാർത്തകൾ ജനങ്ങൾ വിശ്വസിക്കരുതെന്ന് പി ഐ ബി അഭ്യർത്ഥിച്ചു

വിശദാംശങ്ങളുമായി പാർവ്വതി വീജയൻ

ടി ജീവനക്കാർക്കായി കമ്പനികളുമായി ചേർന്ന് വർക്ക് നിയർ ഹോം യൂണിറ്റുകൾ ആരംഭിക്കാൻ സർക്കാർ സന്നദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ വകുപ്പുകൾക്ക് ആവശ്യമായ ഐ ടി അധിഷ്ഠിത സേവനങ്ങളിൽ കേരളത്തിലെ ഐ ടി കമ്പനികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിന് നയരേഖ പരിശോധിച്ച് തീരുമാനം എടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംരംഭങ്ങളെ തകർച്ചയിൽ നിന്ന് കരകയറ്റുന്നതിനോടൊപ്പം ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷ കൂടി പരിഗണിക്കുമെന്നും ശ്രീ

കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ബാലവേല കൂടാൻ കാരണമാകുമോ എന്ന ആശങ്കയിലാണ് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകൾ താരരതമ്യേന ബാലവേല കുറവായ കേരളത്തിൽ ശരണബാല്യം പോലുള്ള പദ്ധതികളിലൂടെ ബാലവേല കൂടാതിരിക്കാനുള്ള പരിശ്രമങ്ങൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്

സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ കാലവർഷത്തിന് മുന്നോടിയായി കനത്ത മഴ പെയ്യുന്നുണ്ട്

ഐ ടി

ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്സ് രണ്ടാം സ്ഥാനത്തും ഐ

മാനവ വിഭവശേഷി വികസന മന്ത്രി രമേഷ് പൊഖ്റിയാൽ നിഷാങ്ക് ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത് മാനേജ്മെന്റ് വിഭാഗത്തിൽ ഐ

എം അഹമ്മദാബാദും മെഡിക്കൽ വിഭാഗത്തിൽ ന്യൂഡൽഹിയിലെ എയിംസും ഒന്നാംസ്ഥാനം കരസ്ഥമാക്കി

കോളേജുകളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജാണ് കേരളത്തിൽ ഒന്നാമത്

മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലെർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്